ജി

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പൊലീസ് റിപ്പോർട്ട് നൽകി

കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർപട്ടിക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ

ഇതിൽ പത്ത് പേർ ജയ്ഷെ മുഹമ്മദ് പ്രവർത്തകരാണ്

ജിതേന്ദ്ര സിംഗിനെ ജമ്മുകാശ്മീർ ഡിജിപി ദിൽബാഗ് സിംഗ് അറിയിച്ചു

വിശദ വിവരങ്ങളുമായി സുനീഷ് പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ടർക്കി പ്രസിഡന്റ് കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തിയത് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന സമീപനത്തെ പിൻതുണച്ച ടർക്കിയുടെ നിലപാടാണ് ഇന്ത്യയെ പ്രകോപിച്ചത് കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ടർക്കി ഇടപെടരുതെന്നും ശ്രീ

പാകിസ്ഥാനിൽ നിന്നുളള തീവ്രവാദികളുടെ ഭീഷണി തുടങ്ങിയ വസ്തുതകൾ ടർക്കി മനസിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ജമ്മു കശ്മീരിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ വിദേശനയതന്ത്ര പ്രതിനിധി സംഘം അഭിനന്ദിച്ചു

ജമ്മു കശ്മീരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളും നിലവിലെ സുരക്ഷാസ്ഥിതിയും പ്രതിനിധികൾ വലയിരുത്തി

കശ്മീരിൽ അവശേഷിക്കുന്ന നിയമങ്ങൾ കൂടി നീക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ കാര്യ വക്താവ് വിർഗിനി ബാറ്റു ഹെന്ററിക്സൺ പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രൂമൂന്നുമാസം മുതൽ രണ്ടു വർഷം വരെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കാ്മെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്

കത്വ ജില്ലയിലെ ഹിരാനഗറിൽ ഇന്ന് പുലർച്ചെയും പാകിസ്ഥാൻ പ്രകോപന രഹിതമായി ഷെല്ലാക്രമണം നടത്തി ആക്രമണത്തിൽ മേഖലയിലെ ചില വീടുകൾക്ക് നാശം സംഭവിച്ചെങ്കിലും ജനങ്ങൾക്ക് അപകടം ഉണ്ടായില്ല

പ്രതിരോധം നിക്ഷേപം ഗതാഗതം തുറമുഖം സംസ്കാരം വ്യവസായം ബൌദ്ധിക സ്വത്ത് അവകാശം യോഗ എന്നീ മേഖലകളിലെ സഹകരണത്തിനാണ് കരാറിൽ ഏർപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസെലോ റിബെലോ ഡി സൂസയും ഇന്നലെ ന്യൂഡൽഹി യിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഒപ്പിട്ടത്

ഒരു ദിവസത്തെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഉത്തർ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ കല കരകൌശല മേള ദീൻ ദയാൽ ഹസ്തകലാ ശങ്കുളിൽ ശ്രീ

സംസ്ഥാന ത്തിന്റെ കലയ്ക്കും കരകൌശല ഉല്പന്നങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതിനായാണ് രണ്ട് ദിവസത്തെ മേള ലക്ഷ്യമിടുന്നത്

ജാപ്പനീസ് തുറമുഖത്തുള്ള ആഡംബര കപ്പലിലെ മൂന്നാമത്തെ ഇന്ത്യക്കാരനും കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായി ടോക്കിയോയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു

ഇന്ത്യയിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷിച്ച് വരികയാണ്

വോട്ടർപട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കമ്മീഷൻ നിർത്തിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്

മാസം യൂണിറ്റ് പ്രെർ ഉപയോഗിക്കുന്ന ബി

കഴിഞ്ഞ ഏപ്രിൽ മുതൽ കെ എസ് ഇ

സംസ്ഥാനത്ത് എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ സംവിധാനം ഉടൻ ലഭ്യമാക്കും ഇന്റർനെറ്റ് ഫലപ്രദമായി ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്നതിൽ പുതുതലമുറ മുന്നോട്ടു വരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ

നിലവിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് വരികയായിരുന്നു ശ്രീ

അനീഷ് പാണ്ടെയും എസ് എസ് സോനിയും ക്രീസിലുണ്ട്